സുക്ഷ്മ ചെറുകിട ഇട്ത്ത്രം സംരംഭങ്ങൾക്ക് അടിയന്തിര വായ്പാ സഹായം ലഭ്യ്മാക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ സ്വീകരിച്ച നടപടിക്കൾ വിലയിരുത്തി കേന്ദ്ര ധനമന്ത്രി നിർമല സീതാരാമൻ

വിശദപിവരങ്ങളുമായി ദേവിപ്രിയ വോയിസ് മന്ത്രിമാരായ ഹർദ്ദീപ് സിംഗ് പുരി നിത്യാനന്ദ് റായ് മൻസുഖ് മാണ്ഡവ്യ അശ്വനികുമാർ ചൌബേ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു

കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യം മഹാരാഷ്ട്ര തെലങ്കാന തമിഴ്നാട് രാജസ്ഥാൻ അസം ഹരിയാന ഗുജറാത്ത് കർണാടക ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് ഡൽഹി ബിഹാർ ഉത്തർപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിലേക്കാണ് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചത് പൊതുജനാരോഗൃ വിദഗ്ദ്ധൻ പകർച്ചവ്യാധി വിദഗ്ധൻ ചികിത്സാ രംഗത്തെ വിദഗ്ധൻജോയിന്റ് സെക്രട്ടറി തലത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്നതാണ് സംഘം പരിശോധനകൾ വർദ്ധിപ്പിക്കുക വിഭവങ്ങളുടെ കൂറവ് പരിഹരിക്കുക മരണനിരക്ക് കുറയ്ക്കുക രോഗികളുടെ എണ്ണം ഇരട്ടിയാകുന്നതിനെടുക്കുന്ന സമയം ദീർഘിപ്പിക്കുക എന്നീ കാരൃങ്ങളിൽ സംഘം ശ്രദ്ധ പതിപ്പിക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

നടപടിക്രമങ്ങൾ ലളിതമാക്കി ബ്രാഞ്ച് തലങ്ങളിൽ ഉദ്യോഗസ്ഥർ പദ്ധതി നടത്തിപ്പിന് മുൻകൈയെടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു അർഹതയുളള എല്ലാ സംരംഭകർക്കും വായ്പ ലഭ്യമായെന്ന് ഉറപ്പ് വരുത്തണം സുക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് മാത്രമല്ല അർഹതയുള്ള എല്ലാ കമ്പനികൾക്കും വായ്പ ലഭ്യമാക്കണമെന്നും മന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു

ലോക്ഡൌൺ വ്യവസ്ഥകൾ ലംഘിച്ചതിന്റെ പേരിൽ ക്ടൂടിയേറ്റ തൊഴിലാളികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുന്ന കാര്യം പരിഗണിക്കാനും സുപ്രീംകോടതി ആവശ്യപ്പെട്ടു

ജെ പി ഓൺലൈനായി സംഘടിപ്പിക്കുന്ന മഹാരാഷ്ട്ര ജൻ സമ്വാദ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി ഇന്ത്യ ചൈന ചർച്ചയ്ക്കിടെ രാജൃത്തിന്റെ യശസ്സിന് കോട്ടം തട്ടാത്ത തരത്തിൽ മാത്രമേ കരാറുകൾ സാധ്യമാക്കൂ എന്നും അദ്ദേഹം പറഞ്ഞു ഈ മാസം ആറിന് നടന്ന ഉഭയകക്ഷി സൈനിക തല ചർച്ച ആശാവഹമായിരുന്നതായും പ്രശ്നപരിഹാരത്തിന് ഇരുകൂട്ടരും സന്നദ്ധത പ്രകടിപ്പിച്ചതായും രാജ്യരക്ഷാമന്ത്രി വൃക്തമാക്കി

അബുദാബിയിൽ നിന്ന് കൊച്ചി അമൃത്സർ എന്നിവിടങ്ങളിലേക്ക് ഇന്ന് വിമാനങ്ങളുണ്ട്

തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആരോഗ്യ പ്രവർത്ത കയ്ക്കും രോഗം ബാധിച്ചു

കാസർഗോഡ് ജില്ലയിലെ ചെമ്മനാട് ചെങ്കള നീലേശ്വരം പൂല്ലൂർ പെരിയ തൃശൂർ ജില്ലയിലെ അവണൂർ അടാട്ട് ചേർപ്പ് വട ക്കേക്കാട് തൃക്കൂർ ഇരിഞ്ഞാലക്കുട മുൻസിപ്പാലിറ്റി എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ ന്യൂസ് ഡെസ്ക് ആകാശവാണി

തീവ്രബാധിത പ്രദേശങ്ങൾ ഒഴികെയുള്ള മേഖലകളില്ലാണ് ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുളളത്

ചില സംസ്ഥാനങ്ങൾ നിയന്ത്രണങ്ങൾ തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട് കേരളത്തിൽ ദേവസ്വം ബോർഡ് നിയന്ത്രണത്തിലുളള ക്ഷേത്രങ്ങൾ ഇന്ന് തുറന്നു

ഇതുസംബന്ധിച്ച് സ്വകാര്യ ബസ് ഉടമകൾ നൽകിയ ഹർജിയിലാണ് നടപടി

മരണസംഖൃ നാലു ലക്ഷത്തി പതിനായിരത്തോടടുക്കുകയാണ്

രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ീഅതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം ബംഗാളാണെന്ന് അദ്ദേഹം പറഞ്ഞു

പി മാരെയും എം

എ മാരെയും പോലും കൊറോണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിച്ചില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കുടിയേറ്റത്തൊഴിലാളികളെ തിരികെയെത്തിക്കുന്നതിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി സഹകരിച്ചില്ലെന്ന വിമർശനവും അദ്ദേഹം ഉന്നയിച്ചു

കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഇക്കാര്യം അറിയിച്ചത്

തമിഴ്നാട് സർക്കാരും പത്താം ക്സാസ് പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട്

നാല് ലക്ഷത്തി എൺപതിനായിരം വിദ്യാർത്ഥികൾ വിജയിച്ചതായി ഗുജറാത്ത് സെക്കൻഡറി ആന്റ് ഹയർസെക്കൻററി ബോർഡ് അറിയിച്ചു

അധ്യാപകരിൽ നിന്നും പ്രക്ഷാകർത്താക്കളിൽ നിന്നും ഇതു സംബന്ധിച്ച് നിർവ്വധി പരാതികൾ ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണിത്